ദേശീയ യുവജന പാർലമെന്റ് മേളക്ക് ്ഇന്ന് തുടക്കം

നാളെ സമാപന സമ്മേളനത്തെ പ്രപ്പ്ധാനമന്ത്രി അഭിസംബോധന ചെയ്യും

എൽ

എസ് എൽ ഫുട്ബോളിൽ ഇന്ന് എ

മോഹൻബഗാൻ മുംബൈ സിറ്റി മത്സരം

ശനിയാഴ്ചയാണ് വാക്സിൻ യജ്ഞം ആരംഭിക്കുന്നത് രാജ്യത്തെ കോവിഡ് വ്യാപനവും പ്രതിരോധവും സംബന്ധിച്ചാണ് പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാരുമായി ചർച്ച നടത്തുന്നത്

കോവിഡ് വാക്സിൻ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചർച്ചാ വിഷയമാകും വിശദാംശങ്ങളുമായി ദേവിപ്രിയ വോയ്സ് വാക്സിൻ ഉപയോഗിക്കാൻ ഡ്രഗ്സ് കൺട്രോളർ അടിയന്തര അനുമതി നൽകിയതിനെ തുടർന്നാണ് മുഖൃമന്ത്രിമാരുമായി പ്രധാനമന്ത്രിയുടെ ചർച്ച

സി എം ആറിന്റെ സ്ഫുകരണത്തോടെ ് ഭാരത് ബയോടെക് നിർമ്മിച്ച ഇന്ത്യയുടെ ഏത്ത് ് കോവാക്സിൻ എന്നീ വാക്സിനുകൾക്കാണ് നിലവിൽ പ്രഡ്മ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ അനുമതി നൽകിയിട്ടു്ളളത്

വരും ദിവസങ്ങളിൽ വാക്സിൻ ലഭ്യമാക്കുമെന്ന് കേന്ദ്രമുന്തി ഹർഷ് വർദ്ധൻ വൃക്തമാക്കിയിരുന്നു വാക്സിൻ മനുഷ്യരിൽ പ്രയോഗിക്കുന്നതിന് മുന്നോടിയായി രാജ്യമെമ്പാടും പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തിയിരുന്നു

നാളെ നടക്കുന്ന സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത യുവതീ യുവാക്കൾ യൂത്ത് പാർലമെന്റിൽ പങ്കാളികളാകും

സ്വാമി വിവേകാനന്ദനെക്കുറിച്ചുള്ള പ്രദർശനം പ്രത്യേക സംഗീത പരിപാടി വിവിധ മത്സരങ്ങളുടെ ദൃശ്യ ശ്രവ്യ പ്രദർശനം തുടങ്ങിയവയും പാർലമെന്റ് സെൻട്രൽ ഹാളിൽ അരങ്ങേറും

പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിലാണ് യുവ ഉത്സാഹ് നയേ ഭാരത് കാ സംഘടിപ്പിക്കുന്നത് ദേശ പുരോഗതിയ്ക്കും വികസനത്തിനും യുവജനങ്ങളുടെ പങ്കാളിത്തം പ്രാധാന്യം അർഹിക്കുന്നുവെന്ന് കേന്ദ്ര കായിക യുവജന ക്ഷേമ സഹമന്ത്രി കിരൺ റിജിജു പറഞ്ഞു ദേശീയ യുവജനോത്സവം യുവാക്കളിൽ ദേശീയ അവബോധം സൃഷ്ടിക്കണം യുവാക്കളാണ് രാജ്യത്തിന്റെ വികസനത്തെ വഴിതിരിച്ചു വിടുന്ന ചാലകശക്തിയെന്നും ദേശീയ യുവജനോത്സവം യുവാക്കളെ അതിന് പ്രോത്സാഹിപ്പിക്കൂമെന്നും ശ്രീ റിജിജു പറഞ്ഞു

ആരോഗ്യ പ്രവർത്തകരും കോവിഡ് മുൻനിര പോരാളികളുമടക്കമുള്ള ഏകദേശം മൂന്ന് കോടി പേർക്കാണ് ആദ്യം വാക്സിൻ നൽകുന്നത്

രണ്ട് മരണങ്ങളും റിപ്പോർട്ട് ട് ചെയ്തു

സുധാകർ അറിയിച്ചു

രാഷ്ട്ര തന്ത്രജ്ഞൻ എന്ന നിലയിൽ തന്റെതായ വ്യക്തിമുദ്ര് പതിപ്പിച്ച പ്രണബ് മുഖർജി പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുന്നതിൽ അസാമാനൃമായ വൈഭവം കാഴ്ച വച്ചിരുന്നതായി സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ അനുസ്മരിച്ചു ഇന്ത്യൻ രാഷ്ട്രീയത്തിന് പകരംവക്കാനില്ലാത്ത അതുല്യ നേതാവിനെയാണ് അദ്ദേഹത്തിന്റെ നിര്യാണത്തിലൂടെ നഷ്ടമായതെന്നും അദ്ദേഹം പറഞ്ഞു വിനയപൂർവ്വമുള്ള പെരുമാറ്റത്തിലൂടെയും ജീവിതത്തിലൂടെയും ലളിത ജനഹൃദയങ്ങളിൽ ഇടം നേടിയ സി എഫ് തോമസ് സംശുദ്ധനായ രാഷ്ട്രീയ നേതാവും മാതൃകാ പൊതുപ്രവർത്തകനും ആയിരുന്നതായും സ്പീക്കർ പറഞ്ഞു

രാജ്യത്തെ മൃഗശാലകളിൽ നിന്നുള്ള പ്രതിദിന റിപ്പോർട്ട് കേന്ദ്ര മൃഗശാല അതോറിറ്റിക്ക് നൽകണമെന്ന് കേന്ദ്ര ് സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്

കോവിഡ് പശ്ചാത്തലത്തിൽ ആദ്യമായാണ് ഇത്തരത്തിൽ ചലച്ചിത്രമേള നടക്കുന്നത് ലോകമെമ്പാടുമുള്ള ചിത്രങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടവ മേളയുടെ ഭാഗമാകും ചലച്ചിത്രങ്ങളും ഇതോടനുബന്ധിച്ച് നടക്കുന്ന ചർച്ചകളും ഒ

കെ മോഹൻ ബഗാൻ മുംബൈ സിറ്റിയുമായി ഏറ്റുമുട്ടും

ഇന്നലെ നടന്ന് മത്സർത്തിൽ കേരളാ ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പൂരിനെ രണ്ടിനെതിരെ മൂന്ന് ിഗ്മോളുകൾക്ക് കീഴടക്കി

സി ചെന്നൈയിൻ എഫ് സി മത്സരം ഗോൾ രഹിത സമനിലയിൽ അവസാനിച്ചു

ചെന്നൈയിലും ആകാശം മേഘാവൃതവും ഇടയ്ക്ക് ചെറിയ തോതിൽ മഴയും അനുഭവപ്പെടാൻ സാധൃതയുണ്ട് എന്നാൽ കൊൽക്കത്തയിൽ പൊതുവേ തെളിഞ്ഞ അന്തരീക്ഷമായിരിക്കും